രാജസ്ഥാൻ തെലങ്കാന നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലേയ്ക്ക് പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിനം ഇന്ന്

ന് പശ്ചിമ മേഖല എക്സ്പ്രസ്വെയുടെ കുണ്ട്ലി മനേസർ സെക്ഷൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദ്യി ്ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ശബരിമലയിൽ ഇന്നലെ രാത്രി നിരോധനാജ്ഞ ലംഘിച്ച് പ്രതിഷേധം നടത്തിയവരെ പോലീസ് അറസ്റ്റുചെയ്ത് നീക്കി

ജ്യോക്കോവിച്ചിന് തോൽവി

സൂക്ഷ്മ പരിശോധന നാളെ നടക്കും

ഐ യുടെ നിർണായക ഭരണസമിതിയോഗം ഇന്ന് ചേരും

ഐ ഗവർണർ ഊർജിത് പട്ടേലിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേരുന്നത് പൊതുമേഖലാ ബാങ്കുകൾക്ക് പ്രവർത്തന മൂലധനം നൽകുക ചെറുകിട വ്യവസായ സ്ഥാപനങ്ങൾക്ക് വായ്പാ ഇളവുകൾ അനുവദിക്കുക ആർ

ഐ യുടെ കരുതൽ ശേഖരത്തിന്റെ ഒരു ഭാഗം ഗവൺമെന്റിന് കൈമാറുക തുടങ്ങിയ നിർണായക വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയാകും

ഗുരുഗ്രാമിലെ സുൽത്താൻപൂർ ജില്ലയിൽ പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും

ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഇന്ന് ആഗോളതലത്തിൽ നിലനിൽക്കുന്ന വെല്ലുവിളികൾ പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ഈ ദിനാചരണത്തിന്റെ ലക്ഷ്യം കൂടുതൽ വിവരങ്ങളുമായി സുപ്രഭ

ആഗോളതലത്തിൽ നിലനിൽക്കുന്ന ശുചീകരണ പ്രതിസന്ധി ഇത്രത്തോളം വലുതാണെന്ന് വ്യക്തമാക്കുന്നതാണ് ഈ കണക്കുകൾ

ഇന്ത്യയിൽ ഇന്ന് ദിനാചരണത്തിന്റെ ഭാഗമായി സച്ഛ് ഭാരത് മിഷൻ വിവിധ സംസ്ഥാനങ്ങളിലായി ബോധവൽക്കരണ ക്ട്രിക്കോപന പ്രവർത്തനങ്ങൾ അടുത്ത ഒക്ടോബ്യോടുട് കൂടി ശുചിത്വഭാരതം നടത്തും യാഥാർത്ഥ്യമാക്കാനുള്ള പ്രധാനിമൃത്തിയുടെ ആഹ്വാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ദിനാചരണ്ടം

ശുചിത്വ ഭാരത മിഷൻ പ്രവർത്തനമാരംഭിച്ചശേഷം ഇന്ത്യയുടെ ഗ്രാമപ്രദേശങ്ങളിൽ വെളിയിട വിസർജ്ജനം നടത്തുന്നവരുടെ എണ്ണത്തിൽ വലിയതോതിൽ കുറവുണ്ടായി

ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ സഹകരണ കരാർ സംബന്ധിച്ചാണ് ചർച്ച ഇന്ന് പോർട്ട് ബ്ലെയറിൽ എത്തുന്ന സിംഗപ്പൂർ പ്രതിരോധ മന്ത്രി ആൻഡമാൻ നിക്കോബാറിലെ ഇൻഡ്യൻ സൈനിക കേന്ദ്രം സന്ദർശിക്കും മുൻ ലഫ്

ജോഷിയുമായും കൂടിക്കാഴ്ച നടത്തും

വിവിധ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും പിൻതുടരുന്ന ഒരു സമൂഹത്തിൽ സഹിഷ്ണുത സഹവർത്തിത്വം സാഹോദരൃം തുടങ്ങിയവ ശക്തിപ്പെടുത്താൻ ഈ വാരാചരണം അവസരം ഇതിന്റെ ഭാഗമായി മതേതരത്വം പ്രോത്സാഹിപ്പിക്കാനും തരുന്നു വർഗ്ഗീയവൽക്കരണം അക്രമങ്ങൾ എന്നിവ തടയാനും ലക്ഷ്യംവച്ചുള്ള വിവിധ പരിപാടികളും സിംപോസിയങ്ങളും ഉസ്മിനാറുകളും നടക്കും

സ്സ്നീധാനത്ത് വലിയ നടപ്പന്തലിനു സമീപം നിരോധനാജ്ഞ ലംഘിച്ച് ശ്ര്ണം വിളിയുമായി പ്രതിഷേധിച്ചവരെയാണ് അറസ്റ്റ് ചെയ്ത് നീക്കിയത് പോലീസ് ഭക്തർക്ക് എതിരല്ലെന്നും എന്നാൽ നിരോധനാജ്ഞ ലംഘിക്കപ്പെട്ട സാഹചര്യത്തിലാണ് അറസ്റ്റ് വേണ്ടിവന്നതെന്നും എസ്

പ്രദിഷ് കുമാർ പറഞ്ഞു അറസ്റ്റിനെ തുടർന്ന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ രാത്രി പ്രതിഷേധ പ്രകടനം നടന്നു തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രിയുടെ വസതിയായ ക്ലിഫ് ഹൌസിലേയ്ക്ക് പൂലർച്ചെ ഒന്നരയോടെ നടത്തിയ മാർച്ച് പോലീസ് തടഞ്ഞു അതേസമയം കേന്ദ്രമന്ത്രി അൽഫോൺസ് കണ്ണന്താനത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇന്ന് ശബരിമല സന്ദർശിക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ബി ജെ പി എം എൽ എ മാർ അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും

തീരദേശ ജില്ലകളിൽ നിന്നും രണ്ടു ലക്ഷത്തോളം പേരെ മാറ്റിപാർപ്പിച്ചു

രണ്ടരലക്ഷത്തോളം പേർ മരിച്ചവരുടെ കുടുംബത്തിന് പത്ത് ലക്ഷം രൂപ വീതം മുഖ്യമന്ത്രി കെ

രക്ഷാപ്രവർത്തനങ്ങൾ പൂർണതോതിൽ നടക്കുകയാണെന്ന് മുഖ്യമന്ത്രി കെ

സംസ്ഥാനത്തുണ്ടായ നഷ്ടപരിഹാരത്തെ കുറിച്ചുള്ള റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തെ സാഹചര്യം വിലയിരുത്താൻ കേന്ദ്രസംഘത്തെ അയയ്ക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രണ്ട് ലോക സാമ്പത്തിക ശക്തികൾ തമ്മിലുള്ള വൻ ശക്തമായ ഭിന്നതകൾക്കിടയിൽ ആദ്യമായി അപെക് നേതാക്കൾക്ക് ഒരു ഔപചാരിക നടത്താനുമായില്ല സമ്മേളനത്തിനിടയിലും പ്രഖ്യാപനം ഇരു രാജ്യങ്ങളുടെയും വിരുദ്ധ നിലപാടുകൾ പ്രകടമായിരുന്നു

എസ് പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് അമേരിക്ക്യൂടെ രാഷ്ട്ര താൽപര്യങ്ങൾക്ക് ഗുണപ്രദമായ ഒന്നും ഇസ്താമിബ്പാദ്ദ് ചെയ്തില്ലെന്നും മറിച്ച് അൽഖയ്ദ നേതാവ് ഒസാമ ബിൻ ലാദനെ സഹായിക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചതെന്നും അദ്ദേഹ്ട് പറഞ്ഞു പാകിസ്ഥാൻ മിലിറ്ററി അക്കാദമിക്ക് സമീപമാണ് ലാദൻ ഒളിച്ചിരുന്നതെന്നും ഇതിനർത്ഥം ഇതെല്ലാവർക്കും അറിയാമായിരുന്നു എന്നുമാണ് ട്രംപ് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത്

വീട്ടുതടങ്കൽ കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് പൂണെ പോലീസ് ഹൈദരാബാദിൽ എത്തി കസ്റ്റഡിയിലെടുത്ത അദ്ദേഹത്തെ കോടതി റിമാന്റ് ചെയ്യുകയായിരുന്നു

ജർമ്മൻ താരം അലക്സാണ്ടർ സ്വരേവ് ആണ് ജോകോവിച്ചിനെ പരാജയപ്പെടുത്തി തന്റെ കരിയറിലെ ഏറ്റവും മികച്ച വിജയം സ്വന്തമാക്കിയത്

ഒരേ എടിപി ഫൈനൽസിൽ ജോക്കോവിച്ചിനെയും ഫെഡററെയും തോൽപ്പിച്ച ആദ്യ കളിക്കാരനാണ് സ്വരേവ്

പൂ ശനിയാഴ്ച രാത്രി ഓസ്ട്രേലിയയെ തോൽപിച്ച് ഇന്ത്യ ബി

തോറ്റെങ്കിലും ഗ്രൂപ്പിൽ നിന്ന് ഓസീസും ക്ലസ്മിഫൈനലിലേക്ക് യോഗൃത സ്വന്തമാക്കി

സംസ്ഥാന പോലീസും ബ്യൂറോ ഓഫ് പോലീസ് റിസർച്ച് ആൻഡ് ഡവലപ്പ്മെന്റും സംയുക്തമായാണ് രണ്ട് ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്

പദ്ധതിയുടെ ഭാഗമായി കുറഞ്ഞ ചെലവിൽ വേഗത്തിൽ പൂർത്തിയാക്കിയ വീടുകൾ സംഘം സന്ദർശിച്ചു